തീരുമാനം തൃണമൂൽ ബി ജെ പി സംഘർഷത്തെ തുടർന്ന്

അവസാനഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഒൻപത് മണ്ഡലങ്ങളിലെ പ്രചാരണം ഇന്ന് രാത്രി പത്തിന് അവസാനിപ്പിക്കണം

ജെ പി സംഘർഷത്തെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അസാ ധാരണ നടപടി നാളെ വൈകീട്ട് വരെയായിരുന്നു ബംഗാളിലെ പ്രചാരണ സമയം അതിനിടെ പ്രധാനമന്ത്രിക്ക് പ്രചാരണം നടത്താൻ സാഹചര്യമൊ രുക്കാൻ വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ വിരുദ്ധമായ നടപടിയെടുത്തതെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു പ്രധാനമന്ത്രിയുടെ പ്രചാരണത്തിന് മാത്രം സഹായം നൽകാനാണോ കമ്മീ ഷന്റെ നിരോധനമെന്ന് വ്യക്തമാക്കണമെന്ന് സി

എം ജനറൽ സെക്ര ട്ടറി സീതാറാം യെച്ചൂരിയും ആവശൃപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബംഗാളിൽ രണ്ടിടത്ത് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ദർവ്വട്ടങ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ വൈകീട്ട് അവസാനിക്കും

പ്രധാനമന്ത്രി പശ്ചിമ ബംഗാളിലും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി പഞ്ചാബിലും ഇന്നലെ തെരഞ്ഞെടുപ്പ് യോഗ ങ്ങളിൽ പങ്കെടുത്തു വാരണാസിയിലെ റോഡ് ഷോയിൽ ഇന്നലെ പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തിരുന്നു

ബജറ്റ് ചർച്ചകളും വോട്ടെടുപ്പും സമ്മേളനകാലത്ത് നടക്കും രാജ്യത്തെ ആദ്യ സമ്പൂർണ കടലാസ്രഹിത നിയമസഭയായി കേരള നിയമസഭ മാറാൻ പോവു കയാണെന്ന് സ്പീക്കർ അറിയിച്ചു

ഡിജിറ്റൽ നിയമസഭയായി മാറുന്നതോടെ രേഖകളുടെ അച്ചടി ഒഴിവാ ക്കാനും വിവരങ്ങൾ വിരൽത്തുമ്പിൽ ലഭിക്കാനും സാധ്യമാകും ഊരാളു ങ്കൽ സൊസൈറ്റിയുടെ സൈബർ പാർക്കാണ് പുതിയ സംവിധാനം നിയമ സഭയിൽ പ്രാവർത്തികമാക്കുന്നത് ഒരു വർഷത്തെ അച്ചടിക്കാവശ്യമായ തുക ഉപയോഗിച്ച് പദ്ധതി നടപ്പാക്കാനാവുമെന്നും സ്പീക്കർ പറഞ്ഞു സർഫാസി നിയമം പഠിക്കുന്ന നിയമസഭാ കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് ആകുന്നതു വരെ ജപ്തിയുമായി ബന്ധപ്പെട്ട ക്രൂർവും മനുഷൃത്വരഹിതവുമായ നടപടി കൾ അവസാനിപ്പിക്കാൻ ബാങ്കുകൾ തയ്യാറാകണമെന്ന് സ്പീക്കർ ആവ ശൃപ്പെട്ടു ജനാധിപതൃ മരൃാദയും മാനൃതയും ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം കേരളത്തിലെ സാമൂഹ്യ സാഹചര്യംകൂടി പരിഗണിച്ച് ബാങ്കു കൾ നടപടിയെടുക്കണമെന്നും ശ്രീരാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു പാവ ങ്ങളെ ബലംപ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കുകയും സമ്പന്നരെ സഹായിക്കു കയും ചെയ്യുന്ന സമീപനമാണ് ബാങ്കുകൾ ഇപ്പോൾ നടപ്പാക്കുന്നതെന്ന് സ്പീക്കർ കുറ്റപ്പെടുത്തി

പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി എ കെ ശശീന്ദ്രൻ ആദ്യ യൂണിറ്റ് ഏറ്റുവാങ്ങി

ദർവ്വെട്ടറ കേരളത്തിലെ നിക്ഷേപ സാധ്യതകൾ വിശദീകരിക്കാൻ യൂറോപ്യൻ പര്യടനം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വിറ്റ്സർലന്റിലെ സി ഇ

ബേണിലെ ഇന്ത്യാ ഹൌസിലായിരുന്നു ചർച്ച

വ്യാപകമായ ക്രമക്കേട് കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് ഓപ്പറേഷൻ ജനരക്ഷ എന്ന പേരിലായിരുന്നു റെയ്ഡ് ഹോട്ടൽ ലൈസൻസ് ക്രമക്കേട് കുറഞ്ഞ പിഴ ചുമത്തൽ കേസുകളിലെ തുടർ നടപടികൾ നിർത്തി വെയ്ക്കൽ എന്നിവ സംബന്ധിച്ച നിരവധി രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട് രദേഷ്ടെടു നെയ്യാറ്റിൻകരയിൽ അമ്മയും മകളും തീകൊളുത്തി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ നാലുപേരെയും നെയ്യാറ്റിൻകര മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു മരിച്ച ലേഖയുടെ ഭർത്താവ് ചന്ദ്രൻ ഭർതൃമാതാവ് കൃഷ്ണമ്മ ഇവരുടെ സഹോദരി ശാന്ത ശാന്തയുടെ ഭർത്താവ് കാശിനാഥൻ എന്നിവ രെയാണ് കോടതി റിമാൻഡ് ചെയ്തത് മരണത്തിൽ ഭർത്താവും ബന്ധു ക്കളും മാത്രമാണ് ഉത്തരവാദികളെന്ന് സൂചിപ്പിക്കുന്ന യുവതിയുടെ മരണ ക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഇവരെ അറസ്റ്റ് ചെയ്തത് രദേഷ്ടെടു ആലുവ ചൂർണ്ണിക്കര നിലംനികത്ത് കേസിൽ വ്യാപക ക്രമക്കേട് നടന്ന തായി വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു ഇതിന്റെ അടി സ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വിജിലൻസ് ഡയറക്ടർ ഉത്തരവി ട്ടു എറണാകുളം റെയ്ഞ്ച് വിജിലൻസാണ് കേസ് അന്വേഷിക്കുന്നത്

സംഭവശേഷം ഷാർജയിലേക്ക് കടന്ന ഇയാളെ ഇന്ന് പുലർച്ചെ രണ്ടോടെ മംഗലാപുരം വിമാനത്താവളത്തിൽ വെച്ചാണ് പിടികൂടിയത് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ് അറസ്റ്റിലായ സുബീഷ് എന്ന് പൊലീസ് അറിയിച്ചു രുട്ട്ട്ട്ട്ട്ട്ട്ട വോട്ടർപട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ചും കള്ളവോട്ടിനെക്കുറിച്ചും പോസ്റ്റൽ ബാലറ്റിലെ ക്രമക്കേടിനെ സംബന്ധിച്ചും പഠിക്കാൻ നിയോഗിച്ച കെ

സി സി സമിതി മറ്റന്നാൾ കണ്ണൂരിലെത്തും രാവിലെ ഡി സി സി ഓഫീ സിൽ സംഘം തെളിവെടുപ്പ് നടത്തുമെന്ന് ഡി സി സി പ്രസിഡന്റ് സതീ ശൻ പാച്ചേനി അറിയിച്ചു ദർവ്വട്ടെഴ ലോകത്തെ ആദ്യ സമ്പൂർണ സൌരോർജ്ജ് വിമാനത്താവളമായ നെടു മ്പാശേരി എയർപോർട്ടിൽ പുതിയ സൌരോർജ്ജ സൃബ്സ്റ്റേഷൻ നിർമ്മിച്ചു പതിനാറ് കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ സബ്സ്റ്റേഷൻ സിയാൽ മാനേജിംഗ് ഡയറക്ടർ വി ജെ കുര്യൻ ഉദ്ഘാടനം ചെയ്തു

രദേഷ്ടങ കേരളത്തിൽ നെൽകൃഷിയുടെ വൈവിധ്യം തിരികെ കൊണ്ടുവരിക യാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വി എസ് സുനിൽകുമാർ പറ ഞ്ഞു പത്തനംതിട്ട കൊടുമണ്ണിൽ കാർഷിക കൂട്ടായ്മയുടെ കൊടുമൺ അരി വിപണിയിലിറക്കുകയായിരുന്നു മന്ത്രി

ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാ നം സംഭരണ പരിധിക്ക് പുറത്തും പാലക്കാട് ജില്ലയിലെ കളങ്ങളിലും വിത്ത്നെല്ല് കെട്ടിക്കിടക്കുന്ന സാഹചരൃത്തിലാണ് അധികവിത്ത് സംഭരി ക്കാൻ തീരുമാനിച്ചത്

വൈകീട്ട് അഞ്ചുവരെ അപേക്ഷയും പ്രിന്റ് ഔട്ട് ഉൾപ്പെടെ അനുബന്ധ രേഖകളും സ്കൂളുകളിൽ വെരിഫിക്കേഷന് നൽകാം

എസ് എൽ സി പരീക്ഷയുടെ ഉത്തരക്കടലാസ് പുനർ മൂല്യനിർണ യവും മാർക്ക് പരിശോധനയും നാളെ തുടങ്ങും

പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡ്രോക്ടർ രാമചന്ദ്രഗുഹ മൂന്നുദിവസത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ശ്രീലങ്കൻ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആലപ്പുഴയിൽ ഹൌസ്ബോട്ടുകളിലും ഹോം സ്റ്റേകളിലും പൊലീസ് പരിശോധന നടത്തി സഞ്ചാരികളുടെ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാത്തതിനെ തുടർന്ന് പുന്നമടയിലെ ഒരു ഹോം സ്റ്റേ ഉടമയെ അറസ്റ്റ് ചെയ്തു

ദൂരപരിധി ലംഘിച്ച് കരയോട് ചേർന്ന് മത്സൃബന്ധനം നടത്തിയതിനാണ് അർത്തുങ്കൽ ഭാഗത്ത് നിന്ന് ബോട്ട് പിടിച്ചെടുത്തത്

സി സി ജനറൽ സെക്രട്ടറിയും കെ

സി അംഗവുമാ യിരുന്ന അടിമാലി ചെങ്ങാങ്കൽ വീട്ടിൽ സി എൻ സോമരാജൻ നിര്യാതനാ യി

ദീർഘകാലം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസി ഡന്റായിരുന്നു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ഹയർ സെക്കൻഡറി സെക്കൻഡറി ലയനത്തിൽ പ്രതിഷേധിച്ച് ജൂൺ മൂന്നിലെ സ്കൂൾ പ്രവേശന പരിപാടികൾ ബഹിഷ്കരിക്കാൻ കേരള എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം തീരുമാനിച്ചു പ്രതിഷേധ സൂചകമായി അധ്യാ പന ജോലി ഒഴികെ മറ്റൊരു ജോലിയും അധ്യാപകർ ചെയ്യില്ലെന്നും സംഘ ടന കോഴിക്കോട്ട് അറിയിച്ചു

ഇന്ന് കരാറുകാരിൽ നിന്ന് മൊഴിയെടുക്കും

സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നൽകാൻ കഴിയാതിരുന്ന സാർഥി ലൈസൻസുകളുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്

കമ്പം സ്വദേശി രാജേന്ദ്രനാണ് പിടിയിലായത് ഇയാളിൽ നിന്ന് ഒരു കിലോയിലേറെ കഞ്ചാവ് പിടിച്ചെടുത്തു ദർശ്ശേര അന്തർ സംസ്ഥാന കഞ്ചാവ് കടത്തുകാരൻ താഴെ ചേളാരി സ്വദേശി എൻ

കഞ്ചാവ് കട ത്തിയ ആഡംബര കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തു

പി വേൾഡ് കോമ്പൌണ്ടിലെ സ്കാനർ ബഹി ഷ്കരണ സമരം ട്രക്ക് ഉടമകൾ പിൻവലിച്ചു സ്കാനിംഗ് പരിശോധനക്ക് ആവശ്യമായ ഡ്രൈവർമാരെ കരാറടിസ്ഥാനത്തിൽ ലഭ്യമാക്കാൻ നടപടി യെടുക്കാമെന്ന് തൊഴിൽവകുപ്പ് ഉറപ്പ് നൽകിയതോടെയാണ് സമരം അവ സാനിപ്പിച്ചത് പുതിയിസംവിധാനം ജൂൺ ഒന്നിന് നിലവിൽ വരും രുട്ട്ട്ട്ട്ട്ട്ട നാളത്തെ കൊച്ചുവേളി ഡെറാഡൂൺ പ്രതിവാര എക്സ്പ്രസ് നിസാമു ദ്ദീനിൽ നിന്ന് തിലക് ബ്രിഡ്ജ് ഷാദ്ര താപ്രി വഴിയായിരിക്കും സർവീസ് നടത്തുകയെന്ന് റെയിൽവെ അറിയിച്ചു